പൌരത്വ ഭേദഗതി ന്റിയ്മത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതിൽ സ്ഠ്സ്ഥാന ഗവൺമെന്റിനോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിശദീകരണം തേടി

പൾസ് പോളിയോ പ്രതിരോധ പരിപാടിക്ക് തുടക്കമായി സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് കുരുന്നുകൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകി

സംഗീതനാടക അക്കാദമി ഒരുക്കുന്ന പന്ത്രണ്ടാമത് രാജ്യാന്തര നാടകോത്സവത്തിന് തൃശ്ശൂരിൽ നാളെ തിരിതെളിയും

സ്റ്റീവൻ സ്മിത്തിന് സെഞ്ചറി

പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പരിപാടിയാണ് പരീക്ഷാ പേ ചർച്ച

ആകാശവാണിയുടെ എല്ലാ മീ ഡിയം വേവ് എഫ്

ചാനലുകളും ദൂരദർശനും പരിപാടി തൽസമയം പ്രക്ഷേപണം ചെയ്യും

സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വിളപ്പിൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി കെ

ആലപ്പുഴ ജില്ലയിൽ പൾസ് പോളിയോ തുള്ളി മരുന്ന് വിതരണത്തിന് മന്ത്രി ജി

സംസ്ഥാനമൊട്ടാകെ ലക്ഷക്കണക്കിന് കുരുന്നുകൾക്കാണ് ഇന്ന് തുള്ളി മരുന്ന് നൽകിയത് പോളിയോ തുള്ളി മരുന്ന് എടുക്കാൻ വിട്ടുപോയ കുട്ടികൾക്ക് നാളെയും മറ്റന്നാളുമായി വീട് വീടാന്തരം കയറി തുള്ളിമരുന്ന് നൽകും

ഗപ്പൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചതിലുള്ള അതൃപ്തി ഗവർണർ നേരത്തെ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു പൌരത്യ ഭേദഗതി പൌരത്വ ഭേദഗതി നിയമത്തിന് അനുകൂലമായും പ്രതികൂലമായും കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളും പരിപാടികളും പൂർണമായും സമാധാനപരമായിരിക്കണമെന്ന് ജില്ലാ കളക്ടർ ടി വി സുഭാഷിന്റെ അദ്ധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗം ആഹ്വാനം ചെയ്തു പരിപാടികളിലെ മുദ്രാവാകൃങ്ങൾ പ്രസംഗങ്ങൾ പ്ലക്കാർഡുകൾ തുടങ്ങിയവ പ്രകോപനപരമോ മതസ്പർധ ഉളവാക്കുന്നതോ ആവരുത് നിയമം ലംഘിക്കുന്നവർക്കെതിരേ കർശന നടപടികൾ കൈക്കൊള്ളുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു രവീന്ദ്രനാഥ് ഗണിതം യുക്തിസഹമായി ചിന്തിക്കാനും ശാസ്ത്രബോധമുള്ളവരാക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഗണിതോത്സവത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി സി

കുമരകം ഗവണ്മെന്റ് വൊക്കേഷണൽ ഹയർ സെക്കന്ററി സ്കൂളിൽ നടന്ന സംസ്ഥാനതല ഗണിതോൽസവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

നാല് ദിവസങ്ങളിലായി നടന്ന ഫെസ്റ്റിവലിൽ സാഹിത്യത്തോടൊപ്പം ആനുകാലിക വിഷയങ്ങളും ചർച്ചയായി കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് ആകാശവാണി പ്രതിനിധി നസീർ ബാബു

പൊന്നാമറ്റം ഷാജു സിലി ദമ്പതികളുടെ മകൾ ഒന്നര വയസുകാരി ആൽഫൈനെ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്

നാളെ രാത്രി ദർശനം പൂർത്തിയാക്കി നട അടച്ച ശേഷം മാളികപ്പുറത്ത് ഗുരുതി നടക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ പ്രധാന ഓഫീസുകളിലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ഓരോ പരാതിപ്പെട്ടികൾ വീതം സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു അഡ്മിനിസ്ട്രേറ്റീവ ഓഫീസർ ഗ്രേഡ് ദേവസ്വം സബ്ഗ്രൂപ്പ് ആസ്ഥാനങ്ങൾ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ അസിസ്റ്റന്റ് ദേവസ്വം എഞ്ചിനീയർ ഓഫീസ് എന്നിവിടങ്ങളിലാണ് പെട്ടികൾ സ്ഥാപിക്കുക ആഴ്ചയിൽ ഒരുതവണ പെട്ടികൾ തുറന്ന് പരാതികൾ പരിശോധിച്ച് വിജിലൻസ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു

എം എ

അർത്തുങ്കൽ ബെസിലിക്ക ആലപ്പുഴയിലെ പ്രസിദ്ധമായ അർത്തുങ്കൽ ബെസിലിക്കയിലെ മകരം തിരുനാൾ നാളെ നടക്കും നാളെ രാവിലെ നടക്കുന്ന ദിവൃ ബലിക്ക് എറണാകുളം അങ്കമാലി അതിരൂപതാ മെത്രാ പൊലീത്ത മാർ ആന്റണി കരിയിൽ മുഖ്യ കാർമികതം വഹിക്കും തിരുനാൾ പ്രമാണിച്ച് ചേർത്തല താലൂക്കിന് നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്

നൃത്തരംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം ഡോ

ചന്ദ്രശേഖറിന് മുഖ്യമന്ത്രി സമ്മാനിക്കും

എം ആകാശവാണി മഞ്ചേരി എഫ് എം

സംരക്ഷണ സമിതിയും അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്